റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു

തന്റെ ഗവൺമെന്റിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നുവെന്ന ഒറ്റവരിപ്രമേയമാണ് അദ്ദേഹം സഭയിൽ അവതരിപ്പിച്ചത് ബി ജെ പി ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കുറ്റപ്പെടുത്തി

ഏത് വെല്ലുവിളിയും നേരിടാൻ ഗവൺമെന്റ് തയ്യാറാണെന്നും ഏതുകാര്യവും സഭയിൽ ചർച്ച ചെയ്യാ മെന്നും കുമാരസ്ഥാമി വൃക്തമാക്കി ബി ജെപി കുതിരക്കച്ച വടം നടത്തുകയാണെന്നും ഇപ്പോഴത്തെ പ്രതിസന്ധിക്കുകാ രണം ബി ജെ പിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സഖ്യഗ വൺമെന്റിനെ മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു അടിസ്ഥാന രഹിതമായ ആരോപണങ്ങ ളാണ് തങ്ങൾക്കെതിരെ ബി ജെ പി ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

ശ്രീമന്ത് ബാലാസാഹിബ് പാട്ടീലിനെയാണ് ഇന്നലെ രാത്രി മുതൽ റിസോർട്ടിൽ കാണാതായത് മുഖ്യമന്ത്രി കുമാരസ്വാ മിയും ഉപമുഖ്യമന്ത്രി ജി പരമേശ്വരയും റിസോർട്ടിൽ എം എൽ എ മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടെയാണ് പാട്ടീലിനെ കാണാതായത്

കുമാരസാമി രാജിവെ ക്കുമോ എന്ന കാര്യം കാത്തിരുന്നു കാണാമെന്നും യെദ്യൂരപ്പ പറഞ്ഞു

കുൽഭൂഷൺ ജാദവിനെ പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെതിരായ കുറ്റം കെട്ടിച്ചമച്ച താണെന്നും രാജ്യസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ മന്ത്രി അറിയിച്ചു അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിയെ അദ്ദേഹം സ്ഥാഗതം ചെയ്തു കുൽഭൂഷൺ ജാദവ് നിരപരാ ധിയാണെന്നും വിദേശകാര്യ മന്ത്രി പറഞ്ഞു രാഷ്ട്രത്തിന്റെയും സഭയുടെയും മൊത്തം വികാരമാണ് താൻ പ്രകടിപ്പിക്കുന്ന തെന്നും ജയശങ്കർ അറിയിച്ചു

ചൊവ്വാഴ്ച രാത്രിയോടെ തകരാർ പൂർണ്ണമായി പരിഹരിക്കുകയും സുര ക്ഷാപരിശോധന പൂർത്തിയാക്കുകയും ചെയ്തതായി ഐ എസ് ആർ ഒ കേന്ദ്രങ്ങൾ അറിയിച്ചു ക്കൽക്കൽ അയോധ്യയിലെ തർക്കഭൂമികേസിൽ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരാൻ സുപ്രീംകോടതി എഫ് എം ഐ ഖലീഫുള്ള ചെയർമാനായ മൂന്നംഗ സമിതിക്ക് അനുവാദം നൽകി

കേസിൽ വിചാരണ വേണമോ എന്ന കാര്യത്തിൽ അടുത്ത മാസം രണ്ടിന് തീരുമാനമെടുക്കുമെന്നും കോടതി പറഞ്ഞു ഖലീഫുള്ള സമിതി സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് സുപ്രീംകോടതി നിർദ്ദേശം കോടതി നേരത്തെ നൽകിയ ഉത്തരവനുസരിച്ച് റിപ്പോർട്ടിലെ ഉള്ളടക്കം രഹസ്യമായിരിക്കുമെന്ന് ഖലീഫുള്ള പറഞ്ഞു

കെ ടി ജലീൽ കൂട്ടുനിൽക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു സെക്രട്ടേറിയറ്റിനു മുന്നിൽ യു ഡി എഫ് എം

എ മാരുടെ ധർണ്ണ ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു അദ്ദേഹം

യൂണിവേഴ്സിറ്റി കോളജിൽ അക്രമത്തിൽ പരിക്കേറ്റ അഖി ലിനെ എസ് എഫ് ഐ യുടെ പുതിയ കമ്മറ്റിയിൽ ഉൾപ്പെടു ത്തിയത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി

ചന്ദ്രശേഖരൻ അറിയിച്ചു തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടർമാരുടെയും റവന്യു ഉദ്യോഗസ്ഥരുടെയും അവലോകനയോഗത്തിൽ പങ്കെ ടുത്തശേഷം മാധ്യമങ്ങളോടു സംസാരിക്കുകയായിരുന്നു അദ്ദേ ഹം

അടുത്ത മേയ് മാസത്തിനുള്ളിൽ ബാക്കിയുള്ളവ വിതരണം ചെയ്യും

ഇടുക്കി എറണാകുളം തൃശൂർ പത്തനം തിട്ട പാലക്കാട് ജില്ലകളിലാണ് പ്രധാനമായും പട്ടയം വിത രണം ചെയ്യുന്നതെന്നും മന്ത്രി അറിയിച്ചു ലാൻഡ് ട്രൈബ്യൂ ണലുകളിൽ നിലവിലെ കേസുകളിൽ ഉടൻ പരിഹാരം കാണു മെന്നും കേസുകൾ തീർപ്പാക്കുന്നതിന് വടക്കൻ ജില്ലകളിൽ ആറ് സ്പെഷ്യൽ ട്രൈബ്യൂണലുകൾ അനുവദിച്ചിട്ടുണ്ടെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു സംസ്ഥാനത്തെ മുപ്പതിനായിരത്തിൽപ്പരം ഹെക്ടർ ഭൂമി വിവിധ ആവശ്യങ്ങൾക്കായി സ്ഥാപനങ്ങൾക്ക് പാട്ടവ്യവസ്ഥ യിൽ നൽകിയിട്ടുണ്ട് ഇതിൽ കാലാവധി കഴിഞ്ഞിട്ടും പുതു ക്കാത്തവരിൽനിന്നും കുടിശ്ശിക അടയ്ക്കാത്തവരിൽനിന്നും ഭൂമി തിരിച്ചുപിടിക്കുമെന്നും മന്ത്രി പറഞ്ഞു പുറമ്പോക്ക് ഭൂമി യിലെ കൈയേറ്റം ഒഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ടുപോ കുമെന്നും മന്ത്രി വ്യക്തമാക്കി

അംഗീക രിച്ച പ്പാൻ അനുമതിയില്ലാതെ മാറ്റിയെന്നു കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണത്തിൽ നിരവധി ചട്ടലംഘനങ്ങളുണ്ടാ യിരുന്നെവെന്നും അതിനാലാണ് അനുമതി നൽകാൻ വൈകി യതെന്നും കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വൃക്തമാക്കി ആന്തൂർ നഗരസഭയ്ക്കോ ഉദ്യോഗസ്ഥർക്കോ ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും സത്യവാങ്മൂല ത്തിൽ പറയുന്നു

സംസ്ഥാന ചീഫ് സെക്രട്ടറി ടോം ജോസ് കൺവീനറായ സമിതിയിൽ യു ജിസി നിർദ്ദേശിച്ച ജവർഹർലാൻ നെഹ്റു സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫ എം ജഗദേഷ് കുമാർ സെനറ്റിന്റെ പ്രതിനിധി സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ഡോ

മൂന്ന് മാസത്തിനകം വൈസ് ചാൻസലർ നിയമനത്തിന് പാനൽ സമർപ്പിക്കാനാണ് സമിതിയോട് നിർദ്ദേ ശിച്ചിരിക്കുന്നത്

ജോസഫ് ആവശ്യപ്പെട്ടു ഇതുസംബസിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കത്തയച്ചു സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ ഏക സംഘടനാ വാദമുയർത്തി എസ്

ഐയും എ

യും നടത്തുന്ന പൌരാവകാശ ലംഘനവും ജനാധിപത്യ ധംസനവും സംസ്ഥാത്തിന് അപമാന മാണെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു

ഗവൺമെന്റ് സംവിധാനങ്ങളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കാനും കൃാമ്പുകൾ തയ്യാറാക്കുന്നതുൾപ്പെടെ മുന്നൊ രുക്കങ്ങൾ നടത്താനുമാണ് റെഡ് അലേർട്ട്കൊണ്ട് ഉദ്ദേശിക്കു ന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ അതി തീവ്രമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധൃത വർധിക്കുമെന്നും കാലാവ സ്ഥാവകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്ന് എറണാകുളം കോഴി ക്കോട് കണ്ണൂർ ജില്ലകളിലും നാളെ എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്

ഹൃദയസ്തംഭനത്തെ തുടർന്ന് രാവിലെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം

ശരവണഭവൻ ചെന്നൈ ശാഖയിൽ അസി

വിചാരണസമയത്ത് ഉന്ന യിക്കാ തിരുന്ന ആരോഗ്യ പ്രപശ് ന ങ്ങൾ ശിക്ഷാവിധിയ്ക്കുശേഷം ചൂണ്ടിക്കാണിക്കുന്നതിലെ നിയമസാ ധുത ചോദ്യം ചെയ്താണ് സുപ്രീംകോടതി അപേക്ഷ തള്ളി യത് കൊയിലാണ്ടിയിൽ ദേശീയ പാതയിൽ ടാങ്കർ ലോറിയും ചരക്ക് ലോറിയും കൂട്ടിയിടി ച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു ചരക്ക് ലോറിയുടെ ഡ്രൈവർ തിരൂർ തിരുനാവായ സ്വദേശി ജാഫർ ടാങ്കർലോറിയുടെ ഡ്രൈവർ തമിഴ്നാട് സ്വദേശി രാജേന്ദ്രൻ എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ പരുക്കേറ്റ രണ്ട് പേർ മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ചികീത്സയിലാണ്

ദുരഭിമാനക്കൊലക്ക് ഇരയായ കെവിന്റെ മരണം കൊലപാതകം തന്നെയെന്ന് പ്രോസിക്യൂഷൻ സമർത്ഥിച്ചു

മംഗലൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കർണ്ണാടക ഗവൺമെന്റ് നൽകുന്ന ബസ് കൺസഷൻ പാസുകൾ കേരള ആർ ടി സിയിലും അനുവദി ക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു

ആലപ്പുഴ വഴി പോകുന്ന എറണാകുളം കായംകുളം എറണാകുളം പാസ ഞ്ചർ ട്രെയിൻ കൊല്ലം എറണാകുളം കൊല്ലം മെമുട്രെയിൻ എന്നിവ റദ്ദാക്കി

ഉടൻ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീയ ണച്ചു ശ്രീതീകരണ സംവിധാനത്തിലെ ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമെന്ന് പൊലീസ് പറഞ്ഞു